ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയെ മിസോറം ഗവർണറായി നിയമിച്ചു

പി പിന്തുണയോടെ ബി

പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയെ മിസോറം ഗവർണറായി രാഷ്ട്രപതി നിയമിച്ചു കേന്ദ്ര ധനമന്ത്രാലയത്തിലെ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ഗിരീഷ് ചന്ദർ മുർമുവിനെ ജമ്മുകശ്മീരി ലെയും മുൻ രാജ്യരക്ഷാ സെക്രട്ടറി ആർ കെ മാഥൂറിനെ ലഡാക്കിലെയും ആദ്യ ലഫ്റ്റനന്റ് ്ഗവർണർമാരായി നിയമിച്ചതായും രാഷ്ട്രപതി ഭവൻ അറി യിച്ചു

പുതിയ ലഫ്റ്റനന്റ് ഗവർണർമാർ അന്ന് ചുമതലയേൽക്കും ജമ്മുകശ്മീർ ഗവർണർ സത്യപാൽ മാലിക്കിനെ ഗോവയിലേക്ക് മാറ്റി ഇന്റ ലിജൻസ് ബ്യൂറോ മുൻ മേധാവി ദിനേശ്വർ ശർമയായിരിക്കും ലക്ഷദ്വീപിലെ പുതിയ അഡ്മിനിസ്ട്രേറ്റർ

എസ് ശ്രീധരൻപിള്ള കോഴിക്കോട്ട് പ്രതികരിച്ചു സംസ്ഥാനത്ത് പുറത്ത് പ്രവർത്തി ക്കാനാവുമോ എന്ന് പ്രധാനമന്ത്രി ആരാഞ്ഞിരുന്നതായി അദ്ദേഹം പറഞ്ഞു ജനസേവനത്തിന് ഒരു ഉപാധിയായി ഗവർണർ സ്ഥാനത്തെ കാണുന്നു വെന്നും ശ്രീധരൻപിള്ള അറിയിച്ചു നിയമജ്ഞൻ കവി എഴുത്തുകാരൻ പ്രാസംഗികൻ എന്നീ നിലകളിൽ വൃക്തിപ്രഭാവം പ്രകടിപ്പിച്ച ശ്രീധരൻപിള്ള രണ്ടുതവണ ബി ജെ പി സംസ്ഥാന അധൃക്ഷനായിരുന്നിട്ടുണ്ട് വക്കം പുരു ഷോത്തമനും കുമ്മനം രാജശേഖരനും ശേഷം മിസോറും ഗവർണറാകുന്ന മൂന്നാമത്തെ മലയാളിയാണ് ശ്രീധരൻപിള്ള

ജെ പി മന്ത്രിസഭ രൂപീകരിക്കും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായുമായി ജെ

പി അധ്യക്ഷൻ ദുഷ്യന്ത് ചൌത്താല ന്യൂഡൽഹി യിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ ബി

പിക്ക് പിന്തുണ നൽകാൻ പത്തം ഗങ്ങളുള്ള ജെ

പി തീരുമാനിച്ചതിനെ തുടർന്നാണിത് ഉപമുഖ്യമന്ത്രി സ്ഥാനം ജെ

പിക്ക് നൽകുമെന്ന് അമിത്ഷാ ന്യൂഡൽഹിയിൽ പറഞ്ഞു ആർക്കും ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന ഹരിയാനയിൽ പത്തംഗങ്ങളുള്ള ജെ

പിയുടെയും ഏഴ് കക്ഷിരഹിതരുടെയും പിന്തുണയോടെ ഗവൺമെന്റ് രൂപീകരിക്കാനാണ് ബി

പി തീരുമാനം

ജെ പി നിയമസഭാ കക്ഷി ഇന്ന് ചണ്ഡിഗഡിൽ യോഗം ചേർന്ന് നേതാവിനെ തെരഞ്ഞെടുക്കും തുടർന്ന് ഗവർണറെ കണ്ട് മന്ത്രി സഭാ രൂപീകരണത്തിന് അവകാശമുന്നയിക്കും രദ്ദേഷ്ടങ ബാങ്കോക്കിൽ അടുത്തമാസം ഒപ്പുവെയ്ക്കാനിരിക്കുന്ന മേഖലാ സമഗ്ര പങ്കാളിത്ത കരാറിനെ എതിർക്കാൻ ന്യൂഡൽഹിയിൽ ചേർന്ന കോൺഗ്രസ് നേതാക്കളുടെ യോഗം തീരുമാനിച്ചു കരാർ ആത്മഹത്യാപരമാണെന്നും ചൈനയിൽ നിന്ന് വൻതോതിൽ വിലകുറഞ്ഞ സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ കരാർ കാരണമാകുമെന്നും സുപ്രധാന വിഷയങ്ങളിൽ പ്രതികരിക്കാൻ രൂപീകരിച്ച പതിനെട്ടംഗ നേതാക്കളുടെ യോഗത്തിന് ശേഷം എ കെ ആന്റണി കെ സി വേണുഗോപാൽ ജയറാം രമേശ് തുടങ്ങിയവർ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇതിനെതിരെ രാജ്യ വ്യാപക പ്രക്ഷോഭം നടത്തുമെന്നും അവർ പറഞ്ഞു രാജ്യം കടുത്ത സാമ്പ ത്തിക പ്രതിസന്ധിയിലേക്കും മാന്ദ്യത്തിലേക്കും നീങ്ങുകയാണെന്നും കൃഷി തൊഴിലില്ലായ്മ വൃവസായം വ്യാപാരം തുടങ്ങി എല്ലാ മേഖലകളെയും അത് ബാധിച്ചിരിക്കുകയാണെന്നും ആന്റണി അഭിപ്രായപ്പെട്ടു

പൌരത്വ ഭേദഗതി ബില്ലിനെയും എതിർക്കുമെന്ന് നേതാക്കൾ പറ ഞ്ഞു

രാജു അറിയിച്ചു മണ്ണു ത്തി വെറ്ററിനറി ആന്റ് ആനിമൽ സയൻസസ് സർവ്വകലാശാലയിലെ വിവി ധ കേന്ദ്രങ്ങളുടെയും പദ്ധതികളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരി ക്കുകയായിരുന്നു അദ്ദേഹം

ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് കരാ റിലൂടെ പാൽ ഉൾപ്പടെയുള്ളവയുടെ ഇറക്കുമതി വർദ്ധിക്കുന്നത് ലക്ഷക്ക ണക്കിന് വരുന്ന ക്ഷീരകർഷകരുടെ വരുമാനം ഇട്ടിയുന്നതിന് കാരണമാ കുമെന്നും മന്ത്രി പറഞ്ഞു ദർവ്വക്കും പ വിഖ്യാതമായ കേരളാമോഡൽ വികസന് പ്രക്രിയയിൽ ആരോഗ്യമേഖ ല വഹിച്ച പങ്ക് വലുതാണെന്നും കേരള മോഡലിനെ കാലാനുസൃതമായി വികസിപ്പിക്കുന്നതിൽ ആരോഗൃ സർവ്വകലാശാലക്ക് മുഖ്യപങ്ക് വഹിക്കാൻ കഴിയണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു കേരള ആ രോഗ്യ സർവ്വകലാശാലയിൽ പ്രിൻസിപ്പൽമാരുടെ കോൺക്ലേവിനെ അഭി സംബോധന ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രകൃതി ദുര ന്തങ്ങൾ നമ്മുടെ നാടിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ സാരമായി ബാധിക്കുന്നുണ്ട് ദുരന്തബാധിത ദേശങ്ങളിലെ മനുഷ്യരുടെ മാനസികവും ശാരീരികവുമായ പ്രശ്നപരിഹാരങ്ങൾക്കായി ആരോഗ്യസർവ്വകലാശാല ന ടത്തിയ ഇടപെടലുകൾ മാതൃകാപരമാണെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു ദർവ്വട്ടങ മത്സൃത്തിന് ന്യായവില തൊഴിലാളികൾക്ക് കിട്ടുന്ന തരത്തിൽ തൊഴി ലാളികളുടെയും കച്ചവടക്കാരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചു കൊണ്ട് നിയമനിർമ്മാണം നടത്തുമെന്ന്മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു കോ ഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ സംസാരിക്കുകയായിരുന്നു അ വർ ചെറു മത്സ്യബന്ധനം കർശനമായി നിയന്ത്രിക്കും കടലിൽ പ്ലാസ്റ്റിക്ക് മാലിന്യം തള്ളുന്നതിനെതിരെ ശക്തമായ നടപടിയും പ്രവർത്തനവും നട ത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു കടൽക്ഷോഭത്തിന് ഇരയായ മുഴുവൻ മ ത്സ്യത്തൊഴിലാളികളുടെയും പുനരധിവാസം ഉറപ്പാക്കുമെന്നും മേഴ്സിക്കു ട്ടിയമ്മ അറിയിച്ചു

ഈ സീസണിലെ കൊൽക്കത്തയുടെ ആദ്യ ജയമാണിത്

ഗുവാഹതി ഇന്ദിരാ ഗാന്ധി സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്കാണ് മത്സരം ദർശ്ശിക്കു പാരീസിൽ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാ ഗത്തിൽ ഇന്ത്യയുടെ സത്വിക് സായിരാജ് ചിരാഗ്ഷെട്ടി കൂട്ടുകെട്ട് സെമി ഫൈനലിൽ കടന്നു ഡാനിഷ് താരങ്ങളെയാണ് ഇവർ പരാജയപ്പെടുത്തിയ ത് അതേസമയം വനിതാ സിംഗിൾസിൽ ഇന്തൃയുടെ സൈന നേവാൾ കാർട്ട റിൽ പരാജയപ്പെട്ടു രുടെട്ട്ടെടു തിരുവനന്തപുരത്ത് സമാപിച്ച സംസ്ഥാന സിവിൽ സർവീസ് ടൂർണ മെന്റ് ബാസ്ക്കറ്റ്ബാളിൽ കോഴിക്കോട് ജില്ല ചാമ്പ്യൻമാരായി

വോളിബോളിൽ വയനാട് ജില്ല ജേതാക്കളായി കോഴിക്കോടിനെ ഒ ന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് വയനാട് പരാജയപ്പെടുത്തി ദർവ്വെടെ ദ മധ്യകിഴക്കൻ അറബിക്കടലിൽ രൂപംകൊണ്ട ക്യാർ ചുഴലിക്കാറ്റ് വട ക്കുപടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തീവ്ര ചുഴലിക്കാറ്റായി മാറാൻ സാധ്യ തയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തിരുവനന്തപുരത്ത് അറിയിച്ചു കാറ്റ് ദിശമാറി തെക്കൻ ഒമാൻ യെമൻ തീരത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കും കേരളം ഇതിന്റെ സഞ്ചാരപഥത്തിൽ ഇല്ലെങ്കിലും വിവിധ ജില്ലകളിൽ ഒറ്റ പ്പെട്ട ശക്തമായ മഴക്ക് സാധ്യതയുണ്ട്

മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുൻകരുതൽ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാ രണ അതോറിറ്റി അറിയിച്ചു

ഇടുക്കി മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്

കലാമേളകൾ ഉൾപ്പെടെ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലെന്നും നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ലെന്നും കലക്ടർ അറിയിച്ചു

കാസർകോട് ഉപജില്ലാ കലോത്സവം നടക്കുന്ന കുളത്തൂരിൽ കലോത്സവ പന്തലും കാറ്റിൽ തകർന്നു

ചമ്രവട്ടം പാലത്തിനടിയിൽ ഒഴുക്ക് ശക്തിപ്പെട്ടതിനാൽ പുറത്തൂർ ഭാഗങ്ങളിൽ കരയിടിച്ചിലും വ്യാപകമായിട്ടുണ്ട് ഭാരതപ്പുഴയിൽ ചമ്രവട്ടം റഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ സംഭരണ പ്രദേശത്ത് വെള്ളം കൂടിത്തുടങ്ങിയതോടെ പെരുന്തല്പൂർ നദീനഗർ കോളനിക്കാർ ആശങ്കയിലാണ് പ്രളയത്തിൽ വെള്ളം കയറി കോളനിയിലെ മുഴുവൻ വീടുകൾക്കും നാശം സംഭവിച്ചിരുന്നു

കൃത്യംന ടത്തിയ നാലുപേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇതിൽ മൂന്നുപേർ സഹോദരങ്ങ ളാണെന്ന് ജില്ലാ പൊലീസ് മേധാവി യു അബ്ദുൾകരീം പറഞ്ഞു

ദർവ്വെടെ ദ താനൂരിലെ മുസ്ലിംലീഗ് പ്രവർത്തകൻ ഇസ്ഹാഖിനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ സംഭവത്തെക്കുറിച്ച് സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തി ൽ ജുഡീഷ്യൽ അന്വേഷണത്തിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലെന്ന് പ്ര ട തിപക്ഷ ഉപനേതാവ് ഡോക്ടർ എം കെ മുനീർ കോഴിക്കോട്ട് പറഞ്ഞു രദ്ദേഷ്ടങ കോവളം കാസർകോട് ജലപാത പദ്ധതിയുടെ ഭാഗമായ മാഹി വളപട്ട ണം ജലപാതയ്ക്കായി വീടും സ്ഥലവും നഷ്ടമാവുന്നവർക്ക് മികച്ച നഷ്ടപ രിഹാര പാക്കേജാണ് മുന്നോട്ടുവയ്ക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പ ള്ളി അറിയിച്ചു ജലപാതയുടെ ഭാഗമായി കൃത്രിമ കനാൽ കടന്നുപോവുന്ന കണ്ണൂർ കോർപറേഷനിൽപ്പെട്ടവരുടെ യോഗത്തിൽ സംസാരിക്കുകയായി രുന്നു അദ്ദേഹം രദ്ദേഷ്ടങ ഗോശ്രീ ബസുകളുടെ കൊച്ചി നഗരപ്രവേശം യാഥാർത്ഥ്യമായത് ജന ങ്ങളുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ്മയുടെ ഫലമാണെന്ന് മന്ത്രി എ

ഗോശ്രീ ബസുകളുടെ നഗര പ്രവേശനം സാധ്യ മാക്കിയതിന് വൈപ്പിൻ പൌരാവലി നൽകിയ സ്വീകരണത്തിൽ സംസാരി ക്കുകയായിരുന്നു മന്ത്രി ദൃശ്ശിക്കും കണ്ണൂർ ഇരിട്ടി ഉളിക്കൽ റോഡിൽ ചെട്ടിയാർ പീടികക്കടുത്ത് മരം മുറിഞ്ഞ് ബൈക്കിന് മുകളിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു വട്ട്യാംതോട് സ്വദേശി ജെഫിൻ പി മാത്യുവാണ് മരിച്ചത്

എൽ കരാർ തൊഴിലാളികളുടെ അനിശ്ചിതകാല പണി മുടക്ക് തുടരുന്നതിൽ പ്രതിഷേധിച്ച് സമര സഹായസമിതിയുടെ നേതൃത്വ ത്തിൽ എറണാകുളം സുഭാഷ് ചന്ദ്രബോസ് പാർക്ക് മുതൽ ബോട്ട് ജെട്ടി വ രെ കോൺഫെഡറേഷന്റെയും ബി

സമരം ഒത്തുതീർപ്പാക്കണമെന്ന് ജീവനക്കാർ ആവശ്യപ്പെട്ടു